ഐ പി എല്ലിൽ ഇന്ന് കിംഗ്സ് ഇലവൻ പഞ്ചാബും രാജസ്ഥാൻ ് റോയൽസും ഏറ്റുമുട്ടും വൈകിട്ട് ഷെയ്ക്ക് സായിദ് മൈതാനത്താണ് മത്സരം

രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് രാജ്യം ഈ ദിനം ആചരിക്കുന്നത്

ഇന്ന് രാവില്ലെടു ആഹ്മദാബാദിൽ എത്തിയ പ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പ്പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ നാളെ ഏകതാ പ്രതിമയിൽ ്യ നട്ട്ക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ പങ്കെടുക്കും

വോയിസ് ഇന്ന് രാവിലെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ എത്തിയ പ്രധാനമന്ത്രി അന്തരിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി കേശുഭായ് പട്ടേലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു

രാഷ്ട്രീയ ഏകതാ ദിവസ് ആചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേന്ദ്ര സായുധ പോലീസ് സേനകളുടെയും ഗുജറാത്ത് പോലീസ്ന്റെയും സംയുക്ത പരേഡിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഉത്തരാഖണ്ഡിലെ മുസ്സോറിയിൽ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സിവിൽ സർവീസ് പ്രൊബേഷണറി ഓഫീസർ മാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയവും നടത്തും കേവാദിയാ അഹമ്മദാബാദ് എന്നിവിടങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുള്ള രാജ്യത്തെ ആദ്യ സീപ്പെയിൻ സൌകര്യവും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും തന്റെ ദ്വിദിന സന്ദർശനത്തിൽ ഏകതാ പ്രതിമ സമുച്ചയത്തിൽ നിരവധി വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കംകുറിക്കും സർദാർ പട്ടേൽ ജൈവ പാർക്ക് ഏകദാ മാൾ ഏകതാ പ്രതിമ മുതൽ ശ്രേഷ്ഠ ഭാരത് ഭവൻ വരെയുള്ള ബോട്ട് സേവനും തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഫിദാ ഹുസൈൻ യീത്തൂ ഉമർ ഹജാം ഉമർ റാഷിദ് ബെയ്ഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്

അക്രമികളെ കണ്ടെത്താനായി സുരക്ഷാസേന പ്രദേശം വളഞ്ഞിരിക്കുകയാണ്ട് സംഭവത്തെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അപലപിച്ചു

തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ എട്ടിനാണ്

മുതിർന്ന പാർട്ടി നേതാക്കളും താര പ്രചാരകരും റാലികൾ അടക്കമുള്ള പ്രചാരണ ന്നടപടികളുമായി രംഗത്ത് സജീവമാണ്

ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് കൊൽക്കത്തയെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു

ട്രെയിൻ യാത്ര നടത്തുന്ന എല്ലാ വനിതകൾക്കും സമ്പൂർണ്ണ സുരക്ഷിതത്വം നൽകാനാണ് പദ്ധതി ലക് ഷ്യം വെക്കുന്നതെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു

ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്

കോവിഡ് പശ്ചാത്തലത്തിലാണ് മേള മാറ്റി വയ്ക്കാനും അടുത്തവർഷം നടത്താനും തീരുമാനിച്ചത്

ബി ബി

എന്നാൽ ബില്ലിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സർക്കാർ സീറ്റുകൾക്ക് ഇത് ബാധകമാകും

വ്യോമയാനമന്ത്രി ഫ്ർദ്ദീപ് സിങ്ങ് പുരിയാണ് ഇക്കാര്യം അറിയിച്ചത്

ജലവിതരണം സാർവത്രികമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കേന്ദ്ര പ്രതിനിധികൾ വ്യക്തമാക്കി

പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തമിഴ്നാട് ഉത്തരാഖണ്ഡ് ചണ്ഡിഗഡ് ജമ്മുകശ്മീർ കേരളാ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നെല്ല് സംഭരണം സുഗമമായി പുരോഗമിക്കുന്നു